രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാരം ഇന്ന് വൈകിട്ട് ന്യൂഡൽഹിയിലെ രാഷ്ട്രീയ സ്മൃതി സ്ഥലിൽ

ജമ്മുകശ്മീരിലെ കുപ്വാര ജില്ലയിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു

പി നേതാവുമായ അടൽ ബിഹാരി വാജ്പേയിയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി സംസ്കാര ചടങ്ങുകൾ പൂർണ ഔദ്യോഗിക ബഹുമതികളോടെ ന്യൂഡൽഹിയിൽ ഇന്ന് വൈകിട്ട് നടക്കും

മൃതദേഹം ബി ജെ പി ആസ്ഥാനത്ത് ഇപ്പോൾ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി ജെ പി അദ്ധ്യക്ഷൻ അമിത്ഷാ കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയ നിരവധി പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു

വിലാപയാത്രയിലെ ജനത്തിരക്ക് കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ ശക്തമാക്കിയിട്ടു ്

പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ മാർഗ് ബഹദൂർഷാ സഫർ മാർഗ് ഡൽഹി ഗേറ്റ് നേതാജി സുഭാഷ് മാർഗ്ഗ് ശാന്തിവൻ എന്നിവിടങ്ങളിലൂടെയാണ് വിലാപയാത്ര കടന്നുപോകുന്നത്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

അടൽ ബിഹാരി വാജ്പേയിയുടെ നിര്യാണത്തിൽ അമേരിക്ക ജപ്പാൻ റഷ്യ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ പാകിസ്ഥാൻ ല ൻ തുടങ്ങിയ വിവിധ രാജ്യങ്ങൾ അനുശോചനം അറിയിച്ചു

ഇതുകൂടാതെ ഗവൺമെന്റിതര സംഘടന നടത്തിവന്ന ബ്രജേഷ് താക്കൂറിന്റെ ഏഴ് വീടുകളിലും പരിശോധന നടത്തുമെന്ന് സി ബി ഐ വൃത്തങ്ങൾ അറിയിച്ചു മഞ്ജു വർമ്മന്റെ പട്നയിലെ മൂന്ന് വീടുകളിലും മോത്തിഹാരി ബഹൽപൂർ എന്നിവിടങ്ങളിലെ ഓരോ വീടുകളിലുമാണ് പരിശോധന നടത്തിയത് കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞയാഴ്ച മഞ്ചുവർമ്മ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവച്ചിരുന്നു

കശ്മീർ താഴ്വരയിലെ ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് തീരുമാനമെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു

ബ്രിദ്ദിപ്പോര ജില്ലയിലെ ഹജിൻ പ്രദേശത്തും സേനയും ഭീകര്രുമായി രാവിലെ ഏറ്റുമുട്ടി പ്രാരംഭഘട്ടത്തിൽ തന്നെ കുപ്പാര ജില്ലയിലെ ക്രാൽകു ് ഹന്ദ് വാര പ്രദേശത്ത് ഐസ്നികൻ കൊല്ലപ്പെട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു് വടക്കൻ കശ്മീരിലെ ഈ ര പ്രദേശങ്ങളിലും ഭീകരരുടെ സാന്നിധൃം ഉടെ ന്ന വിവരത്തെ തുടർന്ന് സേനയുടെ തിരച്ചിൽ ശക്തമാക്കിയിരുന്നു ബാരാമുള്ള ജില്ലയിലെ ഉറി സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഭീകരർ കടന്നുകയറിയിട്ടു ാകാമെന്നും വിവരങ്ങൾ ഉ ്

ഇതിനെതിരെ മുൻകരുതൽ നടപടികൾ കൈക്കൊള്ളണമെന്ന് പാകിസ്ഥാനോട് ഇന്ത്യ ആവശ്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻമാരുടെ ചർച്ചയിലാണ് ഇക്കാര്യം ഇന്ത്യ വൃക്തമാക്കിയത് ഭീകരാക്രമണ പ്രവർത്തനങ്ങൾ തടയുന്നതിന്റെ ഭാഗമായി നിയന്ത്രണരേഖയ്ക്ക് സമീപം സുരക്ഷ കർശനമാക്കുന്നതിനും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ കൈക്കൊള്ളുമെന്നും പാകിസ്ഥാൻ ഡി ജി എം ഒ ഉറപ്പ് നൽകിയതായും ഇന്ത്യൻ സേനയുടെ ഡി

നോർത്തേൺ കമാൻഡ് ലഫ്റ്റനന്റ് ജനറൽ റൺബീർ സിംഗ് ലഫ്റ്റനന്റ് ജനറൽ ശരൺജീത്ത് സിംഗ് തുടങ്ങിയവർ നിയന്ത്രണ രേഖയിലെ പ്രദേശങ്ങൾ സന്ദർശിച്ചു

മേഖലയിൽ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ യൂണിറ്റുകൾ നടത്തുന്ന പ്രവർത്തനം പ്രശംസനീയമാണെന്നും അവർ പറഞ്ഞു

സംസ്ഥാനത്തിന്റെ രക്ഷാ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം ചേർന്നു

ആയിരങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടു ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്ഥിതിഗതികൾ സംബന്ധിച്ച് ടെലിഫോണ്ടിൽ സംഭാഷണം നടത്തി വെള്ളപ്പൊക്ക സാഹചര്യവും സുരക്ഷാ പ്രവർത്തനങ്ങളും സംബന്ധിച്ച് സംസാരിച്ചു വിലയിരുത്താനായി ഇന്ന് ഉവെകിട്ട് ശ്രീ നരേന്ദ്രമോദി കേരളത്തിലെത്തും

കേരളത്തിലെ സ്ഥിതിഗതികളെ കുറിച്ച് പ്രധാനമന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായും മുഖ്യമന്ത്രി ഇന്ന് ചർച്ച നടത്തി ദുരിതാശ്ചാസ പ്രവർത്തനത്തിന് കൂടുതൽ ഹെലികോപ്ടറുകൾ വേണമെന്ന് കേരളം പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു

കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് രക്ഷാപ്രവർത്തനത്തിന് നല്ല സഹകരണമാണ് ലഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രിയും കേന്ദ്ര മന്ത്രിമാരും സ്ഥിതിയുടെ ഗൌരവം മനസിലാക്കിയാണ് പ്രതികരിക്കുന്നതെന്നും ശ്രീ

നിരവധിപേർ വിവിധിയിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്

രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ് ചിക്കമംഗ്ളൂർ കൊടഗ് ശിവമോഗ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുടെ ന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ബംഗളുരുവിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി

ദുഖത്തിൽ പങ്കുചേരുന്നതായി യു

ഇ പ്രസിഡന്റ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ അറിയിച്ചു മരണമടഞ്ഞവരുടെ കുടുംബത്തോടൊപ്പമാണെന്നും പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും യു

ഇ പ്രസിഡന്റ് ആശംസിച്ചു

തെക്കൻ കേരള തീരത്ത് ശക്തമായ തിരമാലകൾ ഉയരാൻ സാധ്യതയു ന്നും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയു ് മറ്റു ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു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

സർവ്വീസ് പുനരാരംഭിക്കുന്നു കാര്യം സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും മഴയ്യും വെള്ളക്കെട്ടും മാറുന്ന മുറയ്ക്ക് മാത്രമേ സർവ്വീസ് ്സാധ്യമാകൂവെന്നും റെയിൽവേ അറിയിച്ചു

എസ്

ടി സി ഉൾപ്പെടെയുള്ള ഗതാഗത സർവ്വീസ് മുടങ്ങിയിരിക്കുകയാണ് പരമാവധി സ്ഥലങ്ങളിൽ സർവ്വീസ് നടത്താൻ ശ്രമിക്കുന്നു െന്നും കെ എസ്

ടി

എന്നാൽ പ്രളയ സാഹചര്യം രൂക്ഷമായതിനാൽ അതത് ഡിപ്പോകളിൽ ടെലിഫോണിൽ ബന്ധപ്പെട്ടതിനു ശേഷമേ യാത്രയ്ക്ക് ഒരുങ്ങാവൂ എന്നും കെ എസ്

സി അഭ്യർത്ഥിച്ചു